ലഭ്യമാക്കുന്നതടക്കം രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭ മേഖലയുടെ വികസനത്തിനായി വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു

ഛത്തീസ്ഗഢിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശ ന് പത്രികകളുടെ സൂക്ഷ്മപരിശോധന ഇന്ന്

റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ മൂന്ന് സ്വർണ്ണവുമായി കേരളം കുതിപ്പ് തുടങ്ങി

ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള ഇ വിപണിയായ ജെമ്മിൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചു

ചെറു വ്യവസായ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് വെള്ളം മലിനീകരണം എന്നിവയ്ക്ക് ഇനി ഒറ്റ അനുമതി മതി രാജ്യത്തെ നൂറ് ജില്ലകളിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസനം നേരിട്ട് വിലയിരുത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പലിശ സബ്സിഡി മൂന്നിൽ നിന്നും അഞ്ച് ശതമാനമാക്കിയത് ചെറുകിട സംരംഭകർക്ക് ഗുണകരമാണെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ വിലയിരുത്തി

സൌകര്യപ്രദമായി ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യമൊരുക്കാനാണ് ഓർഡിനൻസ് ഇറക്കുന്നത്

ശുപാർശകൾ നേരത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകരിച്ചതാണ്

ഗുണെയിൽ മൂന്നും ഇൻഡോറിൽ രണ്ടും മറ്റിടങ്ങളിൽ ഓരോന്നും വീതമാണ് നാമനിർദ്ദേശം ലഭിച്ചത്

ഋഷികേശിലെ എയിംസിന്റെ പ്രഥമ ബിരുദദാന സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും

സിംബാബ്വെയുടെ സ്വാതന്ത്യ പ്രസ്ഥാനത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളെ ശ്രീ

ഇന്നലെ വൈകിട്ട് ഹരാരെയിൽ ഇന്ത്യൻ സ്മൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

വൃവസായ വികസനവും ഭൌതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തലുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ജപ്പാൻ പ്രതിനിധി ക്സോമത്സുമോട്ടോയും ധനകാര്യ അഡീഷണൽ സെക്രട്ടറി സി

മഹാപത്രയും ഇന്നലെ ന്യൂഡൽഹിയിലാണ് ഉടമ്പടി ഒപ്പിട്ടത്

പിറ്റേദിവസം രാത്രി പത്തിന് നട അടയ്ക്കും ശബരിമല നട തുറക്കുന്നതിന് മുന്നോടിയായി ഇന്ന് അർദ്ധരാത്രി മുതൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ കളക്ടർ നിരോധനാഞ്ജ പ്രഖ്യാപിച്ചു പത്തനംതിട്ട സുരക്ഷാമേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റന്നാൾ രാവിലെ ഏട്ട് മണിയോടെ മാത്രമേ തീർത്മാടകരെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിടൂ

ആറ് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് ന്യൂനമർദ്ദം രൂപംകൊള്ളാൻ സാധ്യതയുള്ളതിനാൽ എട്ടാം തീയതിയോടെ സംസ്ഥാനത്ത് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് സംസ്ഥാന അതിർത്തിയോടു ചേർന്ന വൃഷ്ടിപ്രദേശത്തു ലഭിച്ച കനത്ത മഴയെത്തുടർന്ന് പാലക്കാട് വാളയാർ ഡാമിലെ ജലനിരപ്പ ഉയർന്നു വാളയാർ കോരയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

തിരുവനന്തപുരം നെയ്യാർഡാമിന്റെ നാല് ഷട്ടറുകൾ ഒരടി വീതം ഉയർത്തി നെയ്യാറിന്റെ ഇരു കരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു

ക്രേരളത്തിന് മൂന്ന് സ്വർണ്ണവും ഒരു വെള്ളിയും രണ്ട് പ്പെങ്ക്ലി്പും ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

പോൾവാൾട്ടിൽ സൌമ്യ വി

മീറ്റിൽ ഷോട്ട്പുട്ടിലും ലോങ്ങ്ജമ്പിലും ഇന്നലെ രണ്ട് ദേശീയ റെക്കോഡുകൾ പിറന്നു

മറുപട്ടി ബാറ്റിങ്ങിനിറങ്ങിയ ഹൈദരാബാദ് ഒരു ഓവറിൽ വിക്കറ്റ് ന്ഷ്ടം കൂടാതെ ഒരു റണ്ണെടുത്തിട്ടുണ്ട്

എ

യാത്രക്കാരുടെ കൈവശം മരുന്നിന്റെ കുറിപ്പടിയുണ്ടെങ്കിലും മരുന്ന് കൊണ്ടു വരാൻ മുൻകൂർ അനുമതി വേണമെന്ന് യു എ ഇ ആരോഗൃമന്ത്രാലയം പുറത്തിറക്കിയ പുതിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നു രാജ്യത്ത് നിരോധിച്ച മരുന്നുകളുടെ പട്ടിക ആരോഗ്യമന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്

വ്യക്തികൾ വസ്തുക്കൾ കപ്പലുകൾ വിമാനങ്ങൾ തുടങ്ങി ഇറാന്റെ സമ്പദ്വ്യവസ്ഥയുടെ വിവിധ മേഖലകളെ ഉപരോധം ബാധിക്കും

വിധിയിൽ മതവിശ്വാസ സ്വാതന്ത്രൂവും ഗ്ഗീതിയും അംഗീകരിക്കപ്പെട്ടതായി സംഘടിന്റ വീലയിരുത്തി

മാതൃ ശിശുമരണ നിരക്കു കുറയ്ക്കാനായി സംസ്ഥാനം നടപ്പാക്കുന്ന പദ്ധതികളുടെ വിജയമാണിതെന്നു മന്ത്രി കെ

ശൈലജ പറഞ്ഞു

ബിരുദങ്ങളുടെ തുല്യതയും അംഗീകാരവും സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ശുപാർശ ചെയ്ത മാനദണ്ഡങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും അംഗീകരിച്ച് ഗവൺമെന്റ് ഉത്തരവായി

ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി കേരളത്തിൽ നിന്നുള്ള വി

സാനുവിനെ വീണ്ടും തിരഞ്ഞെടുത്തു